വാക്സിനുകളിലൂടെ മനുഷ്യരാശിയെ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാറാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത്തു

നടപടിയെടുക്കാൻ പാക്കിസ്ഥാന് മേൽ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ശക്തിപ്പെടുത്തണമെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ുശ്രീവാസ്തവ

മരുന്നുനിർമാണത്തിൽ രാജ്യം ലോകത്തിന് മുന്നിൽ കഴിവ് തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ദരിദ്രരെ ശാക്തീകരിക്കാനുള്ള ഇന്ത്യയുടെ പരിശ്രമങ്ങൾ ലോകത്തിന്റെ മുക്കിലും മൂലയിലും ചർച്ച ചെയ്യപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡിനെതിരായ പോരാട്ടത്തിൽ കുറഞ്ഞ് മരണനിരക്കും ഉയർന്ന രോഗമുക്തി നിരക്കും നിലനിർത്താൻ ഇന്ത്യക്കായി മഹാമാരിക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിൽ പ്രവാസികൾ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്

എം കെയർ ഫണ്ടിലേക്കുള്ള അവരുടെ സംഭാവന രാജ്യത്തെ ആരോഗ്യ സേവനങ്ങളെ ശക്തിപ്പെടുത്തുകയാണെന്നും നരേന്ദ്രമോദി ശ്രീ വ്യക്തമാക്കി ആത്മ നിർഭർ ഭാരത് കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമത്തിലാണ് നാം ബ്രാൻഡ് ഇന്ത്യക്ക് പ്രചാരം നൽകുന്നതിൽ പ്രവാസി ഭാരതീയർക്ക് വലിയ പങ്കുണ്ടെന്നും ഒരു സൂര്യൻ ഒരു ലോകം ഒരു ഗ്രിഡ് എന്ന ഇന്ത്യയുടെ മന്ത്രം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയതാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

കാർഷിക വാണ്പിജ്ച്ച് തൊഴിൽ മേഖലകളിൽ ചരിത്രപരമായ നിയമ പരിഷ്കാരങ്ങളാണ് സാധ്യമായതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി

ധനമന്ത്രി നിർമലാ സീതാരാമൻ ധനകാര്യ സഹമന്ത്രി അനുരാഗ് താക്കൂർ നീതി ആയോഗ് വൈസ് ചെയർമാൻ രാജീവ് കുമാർ സി ഇ ഒ അമിതാഭ് കാന്ത് എന്നിവരും മറ്റ് പ്രമുഖ സാമ്പത്തിക വിദഗ്ധരും യോഗത്തിൽ പങ്കെടുത്തു

പാക്കിസ്ഥാന് മേൽ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം തുടരേണ്ടതുണ്ടെന്നും വിദേശകാര്യ വക്താവ് വക്താവ് അനുരാഗ് ശ്രീവാസ്തവ പറഞ്ഞു

ഒന്ന് മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള കുട്ടികളാണ് മരിച്ചത് ഏഴ് കുട്ടികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി ആശുപത്രി അധുകൃതർ അറിയിച്ചു

കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ തങ്ങളും പങ്കു ചേരുന്നതായി അവർ അറിയിച്ചു

ആഭ്യന്തരമന്ത്രി അമിത് ഷായും സുര്ഭവത്തിൽ ദുഖം രേഖപ്പെടുത്തി

ഇതുവരെ കേരളം രാജസ്ഥാൻ മധ്യപ്രദേശ് ഹിമാചൽപ്രദേശ് ഹരിയാന ഗുജറാത്ത് എന്നീ ആറ് സംസ്ഥാനങ്ങളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്

കലണ്ടറിന്റെയും ഡയറിയുടെയും മൊബൈൽ ആപ്പിക്കേഷനുകളുടെ പ്രകാശനവും അദ്ദേഹം നിർവ്വഹിച്ചു

വിശദാംശങ്ങളുമായി ആകാശവാണി കൊച്ചി ലേഖകൻ എൻ

ജയചന്ദ്രൻ

അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകാൻ അനുമതിയുള്ള എല്ലാ വിമാനകമ്പനികൾക്കും കോവിഡ് വാക്സിൻ കൊണ്ടുപോകാം

വാർദ്ധകൃ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു

പതിറ്റാണ്ടുകളോളം ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ പ്രധാന കേന്ദ്രമായി വർത്തിച്ച മാധവ് സിങ് സോളങ്കി പ്രബലനായ നേതാവായിരുന്നുവെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ അനുസ്മരിച്ചു

അർധ സെഞ്ചുറി നേടിയ ശുഭ്മാൻ ഗിൽ ചേതേശ്വർ പൂജാര എന്നിവരാണ് ഇന്തൃയ്ക്കായി മികച്ച പ്രകടനം പുറത്തെടുത്ത്